കൊച്ചി നഗരത്തിലെയും പരിസൂരങ്ങളിലെയും തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി അടിയന്തരമായി പൂർത്തീകരി ക്കാൻ മന്ത്രി ജി സുധാകരൻ നിർദ്ദേശം നൽകി പാലാ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരള കോൺഗ്രസ് വിഷയത്തിൽ പരസ്യപ്രസ്താവന ഒഴിവാക്ക ണമെന്ന് കെ മുരളീധരൻ ഉപതെരഞ്ഞെട്ടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അടുത്ത ഏതാനും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സ്ഥാധ്യതയില്ലെന്ന് കാലാവസ്ഥാ വിലയിരുത്തൽ സ്വർണ്വില വീണ്ടും കുറഞ്ഞു

ബംഗളുരുവിൽ ഐ

ആർ ഒ ആസ്ഥാ നത്തെ ഇസ്ട്രാക്കിൽ നിന്നും രാവിലെ എട്ടിന് രാജ്യത്തെ അഭി സംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ശുഭാപ്തിയുടെയും ഐക്യദാർഢ്യ ത്തിന്റെയും പ്രതീക്ഷയുടെയും വികാരമാണ് പ്രധാനമന്ത്രി രാജ്യ ത്തോടായി നടത്തിയ പ്രസംഗത്തിൽ പങ്കുവെച്ചത് ദൌത്യത്തിൽ പങ്കുചേർന്ന ശാസ്ത്രജ്ഞരെ അഭിവാദ്യം ചെയ്യു ന്നതായും രാജ്യം പൂർണമായും അവരെ വിശ്വസിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം ഐഎസ്ആർഒ ശാസ്ത്രജ്ഞരിൽ അഭിമാനം കൊള്ളുകയും അവർക്കൊപ്പം നിൽക്കുകയുമാണ് ലക്ഷ്യത്തിന് തൊട്ടടുത്തുവരെ എത്തിയശേഷമുണ്ടായ സാങ്കേതിക പ്രശ്നം വരും നാളുകളിൽ അത്തരം സാഹചര്യങ്ങൾ നേരിടാൻ ശാസ്ത്രലോകത്തെ പര്യാപ്തമാക്കും രാജ്യത്തിനായി ജീവിതം ഉഴി ഞ്ഞുവെച്ചവരാണ് ശാസ്ത്രജ്ഞർ തടസ്സങ്ങളിൽ നിരാശരാവാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറണമെന്നും ഇന്നത്തെ ഉയരങ്ങളിൽ ഇസ്രോ എത്തിയത് കഠിന പ്രയത്നം കൊണ്ടാണെന്നും നരേന്ദ്ര മോദി ശാസ്ത്രജ്ഞരെ ഓർമ്മിപ്പിച്ചു ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ടു പോകാതെ വീണ്ടും കരുത്തോ ടുകൂടി മുന്നേറണം രാജ്യം മുഴുവൻ നിങ്ങൾക്കൊപ്പമാണ് പ്രധാ നമന്ത്രി പറഞ്ഞു ദൌത്യം വിജ്യത്തിലെത്താത്തതിന്റെ നിരാശ പ്രക ടിപ്പിച്ച ഐഎസ്ആർഒ ചെയർമാൻ കെ ശിവനെ പ്രധാനമന്ത്രി പ്രത്യേകം സമാശ്ർസിപ്പിച്ചു ഇതിന് മുൻപ് ഐഎസ്ആർഒ നട ത്തിയ ചൊവ്വ ദ്രൌത്യം ഉൾപ്പെടെ നിരവധി വിജയങ്ങളുടെ ചരിത്രം പ്രധാനമന്ത്രി അ്നുസ്മരിച്ചു

ഇസ്രോയെ കുറിച്ച് രാജ്യം അഭിമാനിക്കു കയാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

നല്ലതിനു വേണ്ടി രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും രാഷ്ട്ര പതി ട്രിറ്ററിൽ അറിയിച്ചു

ഭാവിയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അമിത്ഷാ ആശം സകൾ അറിയിച്ചു

ദൌത്യം വിജയമാകാത്തതിൽ നിരാശപ്പെടേണ്ടതി ല്ലെന്ന് വെങ്കയ്യനായിഡു ട്വിറ്ററിൽ കുറിച്ചു ചന്ദ്രയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ലാൻഡ്ടറുമായി ആശയവി നിമയം നഷ്ടമായെങ്കിലും ഓർബിറ്റർ സുരക്ഷിതമാണ്െന്നും ചന്ദ്രനു ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഐഎസ്ആർഒ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഓർബിറ്ററിന് കേടുപാടുകൾ ഇല്ല

ചന്ദ്രോപരിതലത്തെകു റിച്ചും ചന്ദ്രന്റെ അന്തരീക്ഷത്തെ കുറിച്ചും പഠിക്കുകയാണ് ഓർബി റ്ററിന്റെ ദൌത്യം

ഓർബിറ്റർ ഇപ്പോഴും പ്രതീക്ഷിച്ച തരത്തിൽ തന്നെ പ്രവർത്തിക്കുന്നതിനാൽ ലാൻറുമായി ബന്ധം നഷ്ടപ്പെട്ട തിനെ ദൌതൃത്തിന്റെ പരാജയമായി കാണേണ്ടതില്ലെന്ന് അദ്ദേഹം പിടിഐ വാർത്താ ഏജൻസിയോട് പറഞ്ഞു വിക്രം ലാന്ററുമായി ബന്ധം നഷ്ടപ്പെട്ടത് താൻ ഉൾപ്പെടെ ഐഎ സ്ആർഒ യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും നിരാശ രാക്കിയതായും മാധവൻനായർ വെളിപ്പെടുത്തി

ബഹിരാകാശ പദ്ധതികളിൽ വരും കാലങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്നും രാഹുൽ പറഞ്ഞു

ഇപ്പോ ഴത്തെ തടസ്സങ്ങൾ അതിജീവിക്കാൻ ആസന്ന ഭാവിയിൽ അവർക്ക് കഴിയുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു

കൊച്ചി നഗരത്തിലെയും പരിസരങ്ങളിലെയും തകർന്ന റോഡു കളുടെ അറ്റകുറ്റ പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കാൻ മന്ത്രി ജി സുധാകരൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി നഗര ത്തിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഏഴ്കോടി രൂപ അനു വദിച്ചതായി തകർന്ന റോഡുകളുടെ പര്യിശോധന്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഏഴ് മാസത്തിനകം കുണ്ടന്നൂരിലെ ഫ്ളൈഓവറിന്റെ നിർമാണം പൂർത്തിയാക്കുമെന്നും നഗരത്തിൽ ഗൃതാഗത പരിഷ്കരണം നടപ്പാ ക്കു മെന്നും സുധാകരൻ അറിയിച്ചു

പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ മാധ്യമങ്ങൾ സഹായിക്കരുതെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു പാലാരിവട്ടം മേൽപ്പാല അഴിമതിക്കേസിലെ നാല് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇന്ന് പിധി പറയും പിഡബ്ല്യൂഡി മുൻ സെക്രട്ടറി ടി ഒ സൂരജ് ആർഡിഎസ് പ്രൊജക്റ്റ്സ് മാനേജിംഗ് ഡയറക്ടർ സുമിത് ഗോയൽ കിറ്റ്കോ മുൻ എം ഡി ബെന്നിപോൾ ആർബിഡിസികെ അസി

പാലാ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരളാ കോൺഗ്രസ് വിഷയത്തിൽ യുഡിഎഫ് നേതാക്കൾ പരസ്യപ്രസ്താ വന ഒഴിവാക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുര ളീധരൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെ ന്നാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പാലാ ഉപതെരഞ്ഞെടു പ്പിനെ ബാധിക്കില്ലെന്നും യുഡിഎഫിന് മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നും മുരളീധരൻ വൃക്തമ്പാക്കി

തൃശൂർ ജില്ലയിലെ അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് പുന സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇരു കടവുകളിലെയും നിർമ്മാണ ങ്ങൾക്ക് ടെണ്ടർ പൂർത്തിയാക്കാൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ യുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം വിളിക്കും മന്ത്രി എ സി മൊയ്തീന്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന യോഗ ത്തിലാണ് തീരുമാനം